ഡി

എസ് അഞ്ചിടത്തും പി

തോമസിന്റെ കേരള കോൺഗ്രസ് കോട്ടയത്തും മത്സരിക്കും

സാമൂഹൃ മാധ്യമങ്ങളിലൂടെയുള്ളി ത്രെഞ്ഞെടുപ്പ് പ്രചരണം നിരീക്ഷിക്കാൻ പ്രിത്യേക സംവിധാനം ഏർപ്പടുത്തുമെന്ന് മുഖ്യ ത്തെരഞ്ഞെടുപ്പ് ഓഫീസർ

ഗോവയിൽ പ്രമോദ് സ്ാവന്ത് ഗവണ്മെന്റ് ഭൂരിപക്ഷം തെളിയിച്ചു

ജെ

എൽ എമാരുടെ ്പിന്തുണ

സംസ്ഥാനത്ത് ചൂടിന്റെ ആധികൃം വർദ്ധിക്കുന്നു സൂര്യാഘാതത്തിന് സാധൃതയെന്നും മുന്നറിയിപ്പ്

വെസ്റ്റ് നൈൽ വൈറസിനെ കുറിച്ച് പഠിക്കാൻ എത്തിയ വിദഗ്ധസംഘം മലപ്പുറത്ത് പരിശോധന നടത്തി ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ്

ജെ

ഡി

എസ് അഞ്ചിടത്തും പി

തോമസിന്റെ കേരള കോൺഗ്രസ് കോട്ടയത്തും മത്സരിക്കും വയനാട് ആലത്തൂർ ഇടുക്കി തൃശ്ശൂർ മാവേലിക്കര സീറ്റുകളിൽ ബി ഡി

എസ് ജനവിധി തേടുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

ഡി ജെ എസുമായുള്ള സഖ്യം എൻ

എ മുന്നണിക്കു ഗുണം ചെയ്യുമെന്നും സ്ഥാനാർഥികളെ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുമെന്നും ശ്രീ മുരളീധർറാവു വൃക്തമാക്കി താൻ മത്സരിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്നും കേരളത്തിലെത്തി പാർട്ടി പ്രവർത്തകരുമായി ചർച്ച ചെയ്ത ശേഷമേ ഇക്കാര്യം തീരുമാനിക്കുകയുള്ളു എന്ന് ബി

എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു

കൊച്ചിയിൽ ് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദൈവത്തിന്റെയോ ആരാധനാലയങ്ങളുടേയോ പേരിൽ വോട്ടുപിടിക്കാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ജനാധിപത്യത്തിന്റെ സുഗമമായ നടത്തിപ്പിന് എതിരാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുളള തിരഞ്ഞെടുപ്പ് പ്രചാരണം നിരീക്ഷിക്കുന്നതിന് ഏർപ്പെടുത്തുമെന്നും പെരുമാറ്റ ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പൊതുജനങ്ങൾക്ക് മൊബൈൽ വഴി സമർപ്പിക്കാവുന്നതാണെന്നും ശ്രീ ടിക്കാറാം മീണ അറിയിച്ചു

പി സംസ്ഥാന അധ്യക്ഷൻ പി

പ്രചരിക്കുന്ന അഭ്യുഹങ്ങൾക്ക് മറുപടിയില്ലെന്നും സ്ഥാനാർഥി നിർണയത്തിൽ ആർ

എസ് ഇടപെടൽ ഉണ്ടായോ എന്ന് അവ്യരോട് ചോദിക്കണമെന്നും ശ്രീ ശ്രീധരൻപിള്ള കൊച്ചിയിൽ പറഞ്ഞു

മുരളീധരന്റെ സ്ഥാനാർഥി പ്രഖ്യാപനം വൈകിയത് അതുകൊണ്ടാണെന്നും മന്ത്രി ടി

വടകരയിൽ കെ മുരളീധരനെ യു ഡി എഫ് സ്ഥാനാർഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ ആരോപണം ഉയർന്നത് പരാജയം മുൻകൂട്ടി കണ്ടാണ് കോലീബി സഖ്യമെന്ന ആരോപണം ഉന്നയിക്കുന്നതെന്ന് ശ്രീ

പിയുമായ ഇന്നസെന്റ് എസ്

കണിച്ചുകുളങ്ങരയിലെ വെള്ളാപ്പള്ളിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച

സ്ഥാനാർഥി നിർണയത്തിൽ കോൺഗ്ഗസ് ഈഴവ സമുദായത്തെ അവഗണിച്ചെന്നും തുഷാർ മത്സരിച്ചാൽ തോൽക്കുമെന്നും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു

ജെ

ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും രണ്ട് മുതൽ മൂന്നു ഡിഗ്രി വരെ ഉയരാനാണ് സാധ്യത തിരുവനന്തപുരം കാലാവസ്ഥാകേന്ദ്രം ഡയറക്ടർ കെ സന്തോഷ് ആകാശവാണിയോട്

ഈ സാഹചര്യത്തിൽ തൊഴിൽ സമയം പുനഃക്രമീകരിച്ചുള്ള ലേബർ കമ്മീഷണറുടെ ഉത്തരവ് പാലിക്കണമെന്നും അതോറിട്ടി അറിയിച്ചു

ഇതുമൂലൂം കാർഷിക മേഖല കനത്ത പ്രതിസന്ധി നേരിടുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

കോട്ടയം ആസ്ഥാനമായുള്ള വെക്ടർ കൺട്രോൾ റിസർച്ച് സെന്റർ ശാസ്ത്രജ്ഞരാണ് മലപ്പുറത്തെത്തിയത്

ക്യൂലക്സ് കൊതുകുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സംഘം വൈറസ് ബാധ സ്ഥിരീകരിക്കാൻ സാമ്പിളുകൾ വിശദമായ പരിശോധനയ്ക്ക് അയയ്ക്കും മരിച്ച മുഹമ്മദ് ഷാന്റെ വേങ്ങരയിലെ വീട്ടിലും സംഘം പരിശോധന നടത്തി

ഇനിയൊരാൾക്കും രോഗം ബാധിക്കാതിരിക്കാനുള്ള അതീവ ജാഗ്രതയാണ് ആരോഗൃ വകുപ്പ് എടുത്തിരിക്കുന്നതെന്ന് ആരോഗൃ വകുപ്പ് മന്ത്രി കെ

രാത്രി അത്താഴ പൂജക്ക് ശ്രേഷം ഹരിവരാസനം പാടി നട അടയ്ക്കും

അഞ്ച് മാസത്തോളമായി പെൻഷൻ വിതരണം സ്തംഭിച്ചിരിക്കുകയാണ് ഈ തുകയെ ആശ്രയിച്ച് ലക്ഷക്കണക്കിനാളുകൾ കഴിയുന്ന കടുത്ത പ്രതിസന്ധിയിലാണെന്നും അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടി

പാലം സംരക്ഷിക്കുന്നതിനൊപ്പം സമീപത്തായി സമാന്തര പാലം നിർമ്മിച്ച് വാഹന ഗതാഗതം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാകുന്നു ഹൈറേഞ്ച് മേഖലയിലെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് പൊന്മുടി ഇവിടെ സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച തൂക്കുപാലമാണ് പൊന്മുടി അണക്കെട്ടിന് താഴ് വശത്തായി നിർമ്മിച്ചിരിക്കുന്ന പാലത്തിൽ നിന്നും മൂന്നാർ മലനിരകളുടെ വിദൂര ദൃശ്യമാണ് സഞ്ചാരികളെ ഇവിടേയ്ക്ക് ആകർഷിക്കുന്നത്

എ കേരളത്തിലെ മസ്തിഷ്ക മരണ അപ്പിയ്വദാന പ്രക്രിയക്ക് എതിരെ നടക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഐ

മസ്തിഷ്ക് മ്രണ് അവയവദാന പ്രക്രിയയെ തകർക്കുന്ന രീതിയിൽ കേരളത്തിൽ ആസൂത്രിതമായി ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ജീവിച്ചിരിക്കുന്നവരിൽ നിന്നും അവയവം ന്ൽകുന്ന പ്രക്രിയയിൽ വൻ തോതിൽ ഇടനിലക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഐ

എ ആരോപിച്ചു

നെൽ പാടങ്ങളിലെ അമ്നത കൂറക്കാൻ ഡോളോമൈറ്റ് തരികളുടേ ഉപയോഗം ക്രമീകരിക്കുക തെങ്ങിന്റെ ഇടവിളയായി മുതിര പോലുള്ള ധാനൃങ്ങൾ കൃഷി ചെയ്യുക കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുധാന്യങ്ങളുടെ ചാക്രിക ഉപയോഗം അവലംബിക്കുക തുടങ്ങിയവയും പരീക്ഷിക്കും